കർഷകരുടെ കാർഷികേതര വായ്പകൾക്കും മൊറട്ടേറിയം ബാധകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ്റ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരു വനന്തപുരത്ത് തുടങ്ങി

ഭീകരർ ഭൂമിയ്ക്കടിയിൽ ഒളിച്ചാലും വലിച്ചിറക്കി വക വരുത്തുമെന്ന് അദ്ദേഹം അഹമ്മദാബാദിൽ പറഞ്ഞു ശത്രു ക്കളെ അവരുടെ താവളത്തിലെത്തി നേരിടുകയാണ് നയ മെന്നും അതിനായി കൂടുതൽകാലം കാത്തിരിക്കാൻ തയ്യാറ ല്ലെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

മിന്നലാക്രമണം നടക്കുമ്പോൾ രാജ്യ ത്തെവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു ഭരണത്തെക്കുറിച്ചല്ല രാജ്യത്തിന്റെ സുര ക്ഷയെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി ന്റരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും

അസംഘടിത കർഷക തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ ബിഡി റിക്ഷ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ തെരുവ് കച്ചവടക്കാർ തുട ങ്ങിയവർക്ക് പദ്ധതിയിൽ സ്വയം ചേരാവുന്നതാണ്

ഇന്ത്യാ പസഫിക് മേഖലയിലെ സുരക്ഷാ വിദഗ്ധരുടെയും നയതന്ത്രജ്ഞരുടെയും യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേവർഷങ്ങളിൽ മേഖല പല തരം ഭീകരപ്രവർത്തനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടു ണ്ടെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾ ഏതൊ ക്കെ യാ ണെന്ന് ലോക ത്തി ന റി യാ മെന്നും സുനിൽലാംബ വിശദികരിച്ചു

പൊതുമേഖലാ വാണിജ്യ സഹകരണ ബാങ്കുകളിൽ നിന്ന് കർഷകകരെടുത്ത എല്ലാ വായ്പകൾക്കും തീരുമാനം ബാധകമാണെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം മുഖ്യമന്ത്രി പിണറായിവിജയൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളന ത്തിൽ പറഞ്ഞു

വിളനാശത്തിന് നഷ്ടപരിഹാരം ഇരട്ടിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നഷ്ടപരിഹാരം ഉടൻ നല്കും

കാർഷിക കടാശ്വാസ കമ്മീഷൻ പരിധിയിൽ വാണിജ്യബാ ങ്കുകളെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കാൻ കൃഷി ആസൂത്രണ വകുപ്പുകളെ ഉൾപ്പെടുത്തി സമിതി രൂപീ കരി ക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു കാർഷിക കടാശ്ചാസ കമ്മീ ഷൻ പരിഗണിക്കുന്ന വായ്പാപരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയാക്കാനും തീരുമാനമായി

മുന്നാക്കക്കാരിലെ പാവപ്പെട്ടവർക്ക് സംവ രണം ഉറപ്പാക്കുന്നതിന് സാമ്പത്തിക പിന്നാക്കാവസ്ഥയുടെ മാനദണ്ഡം നിശ്ചയിക്കാൻ റിട്ടയേർഡ് ജില്ലാജഡ്ജി എ ശശി ധരൻനായരുടെ നേതൃത്വത്തിൽ രണ്ടംഗ സമിതി രൂപീകരി ച്ചു മൂന്നുമാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പുറംപോക്കിൽ താമസിക്കുന്ന പ്രളയബാധിതർക്ക് മൂന്ന് സെന്റോ അഞ്ച് സെന്റോ വീട് വെയ്ക്കുന്നതിന് ഗവൺമെന്റ് ഭൂമി പതിച്ചുനൽകും പുതിയ വീടിനായി ഇവർക്ക് നാല് ലക്ഷം രൂപ നൽകും ഗവൺമെന്റ് ഭൂമി ലഭ്യമല്ലെങ്കിൽ പരമാവധി ആറ് ലക്ഷം രൂപ നൽകു മെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

വിഴിഞ്ഞത്ത് നാല് കോടി രൂപ ചെലവിൽ സമുദ്ര ഭക്ഷ്യ സംസ്കരണ ശാലയും വിപണനസൌകര്യവുമൊരു ക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഉയർന്നേക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ല കളിൽ ഇന്ന് ശരാശരിയ്ക്കുമുകളിൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം

ധാരാളം വെള്ളം കുടി ക്കണമെന്നും പരീക്ഷാകാലമായതിനാൽ രക്ഷിതാക്കളും സ്കൂൾ അധികാരികളും മുൻകരുതൽ നടപടികൾ സ്വീകരി ക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരിട്ട് സൂര്യപ്രകാശ മേൽക്കുന്ന ജോലികൾ ഒഴിവാക്കണം ജോലിസമയം പുനഃ ക്രമീകരിക്കുന്നതിന് പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാഭരണാധികാരികളും നിർദ്ദേ ശങ്ങൾ പാലിക്കണമെന്നും മുൻകരുതൽ നടപടികൾ സ്വീക രിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടിസ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനാണ് യോഗം ചേരുന്നത് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാന കമ്മറ്റിയും ചേരുന്നുണ്ട് സിറ്റിങ്ങ് എംപിമാരിൽ ചില രെ യെ ങ്കിലും നിലനിർത്തി മറ്റ് സീറ്റുകളിൽ പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാ നാണ് സാധ്യത സിപിഐ മാതൃകയിൽ എംഎൽഎമാരെ മത്സരിപ്പിക്കുന്നു കാര്യവും സംസ്ഥാന നേതൃയോഗങ്ങൾ ചർച്ചു ചെയ്തേക്കും

വൈസ് ചെയർമാൻ ജോസ്

മാണിയും പി

ജോസഫും വ്യക്തമാക്കിക്കഴിഞ്ഞു മുസ്തീം ലീഗുമായും ആലുവായിൽ കോൺഗ്രസ് ഇന്ന് ചർച്ച നടത്തും കേരളാ കോൺഗ്രസും മുസ്ലീം ലീഗും കൂടു തൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഴയ ഫോർമുല തന്നെ തുടരാനാകുമെന്ന വിശ്വാസത്തിലാണ് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കെപിസിസി പ്രസി ഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹ ചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ ജയി ക്കേണ്ടതിന്റെ ആവശ്യകത ഘടക കക്ഷികളെ ബോധ്യപ്പെ ടുത്താൻ കഴിയുമെന്നാണ് അവർ നൽകുന്ന സൂചന ഇന്നത്തെ ചർച്ചയോടെ യുഡിഎഫ് പട്ടിക്ക് രൂപം നൽകാനാകുമെന്നാണ് മുന്നണിയുടെ പ്രതീക്ഷ

സംസ്ഥാനത്തെ നാല് മേഖലകളായി തിരിച്ച് ജനറൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിലാണ് പരിവർത്തന യാത്രകൾ സംഘടിപ്പിക്കുന്നത്

കാസർകോട് കുമ്പളയിൽ വൈകീട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം

രമേശിന് പതാക കൈമാറി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി

രാധാകൃഷ്ണൻ നേതൃത്വം നൽകുന്ന എറണാ കുളം മേഖലാ യാത്ര കൊടുങ്ങല്ലൂരിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടനം ചെയ്യും പാലക്കാട് മേഖലാ ജാഥ ഗുരുവായൂരിൽ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

തിരുവനന്തപുരം മേഖലാ യാത്ര കാഞ്ഞിരപ്പള്ളിയിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും

കാസർകോട് മുതൽ പാലക്കാട് വരെ ജില്ല കളിലെ ഡി സി സി അധ്യക്ഷൻമാർ കെ പി സി സി ഭാര വാഹികൾ എന്നിവർ പങ്കെടുക്കുന്നുണ്ട് കെ പി സിസി പ്രസി ഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല വർക്കിംഗ് പ്രസിഡണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ലോക് സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എൻ സി പിയ്ക്ക് സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു

ഇന്നലെ വൈകീട്ട് പ്രദേശത്ത് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന റിപ്പോർട്ടി നെ തുടർന്ന് പരിശോധന നടത്തുന്നതിനിടെയാണ് ഏറ്റുമു ട്ടലുണ്ടായത് ഒരു വീട്ടിൽ ഒളിച്ചിരുന്ന ഭീകരരാണ് കൊല്ല പ്പെട്ടത് വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റു

ലലലലല സാങ്കേതികത്പത്തിന്റെ പേരിലുളള നിലപാടുകൾ ന്യായ മായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരി ക്കുന്നതിന് തടസ്സമായിക്കൂടാ എന്ന് മുൻമുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു തിരവനന്തപുരത്ത് കെ എസ് ആർ ടി സി പിരിച്ചുവിട്ട എംപാനൽഡ് ജീവനക്കാരുടെ അനിശ്ചി തകാല സ്മരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ആദ്യ ഏകദിന ത്തിൽ ആറുവിക്കറ്റിന് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തിരു ന്നു

തീർത്ഥാട കർക്ക് വിപുലമായ സജ്ജീകരണങ്ങളാണ് തിരുവിതാംകൂർ ദേവസംബോർഡും ആലുവ നഗരസഭയും ഒരുക്കിയത്

ഇന്നലെ ചെന്നൈ യിൽ നിന്നെത്തിയ ട്രെയിനിന് എൻ കെ പ്രേമചന്ദ്രന്റെ നേതൃ ത്വത്തിൽ സ്വീകരണം നൽകി കാസർക്കോട്ടുനിന്ന് മത്സൃബന്ധനത്തിനുപോയി ബോട്ട് മുങ്ങിയതിനെ തുടർന്ന് നടുക്കടലിൽപെട്ട അഞ്ച് മത്സൃത്തൊഴിലാളികളെ നാവികസേന രക്ഷപ്പെടുത്തി കാഞ്ഞങ്ങാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി യിൽ എത്തിച്ച ഇവരെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്കയച്ചു ലലലലല പാലക്കാട് അമ്പലപ്പാറ സമഗ്ര ശുദ്ധജല വിതരണ പദ്ധ തിയുടെ ഒന്നാംഘട്ടം രാവിലെ മന്ത്രി കെ